അതിർത്തി പ്രദേശങ്ങളിൽ പ്പർശോധന തുടരുന്നു

സാർക്ക് കൊറോണ രോഗത്തിനെതിരെ സാർക്ക് രാജ്യങ്ങൾ ഒറ്റകെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ആശങ്ക വേ കരുതലും ജാഗ്രതയും മതി എന്നതാണ് നമ്മൾ സ്വീകരിക്കുന്ന മാർഗ്ഗം ട്ട് വൈറസ് ബാധ തടയാൻ ഇന്ത്യ സ്വീകരിച്ച വിജയകരമായ മാർഗ്ഗങ്ങളും അനുഭവങ്ങളും ശ്രീ

അതു കൊടു് തന്നെ കൂട്ടായ യത്ന്നത്തിലൂടെ രോഗ പ്രതിരോധ നടപടികൾ പ്പിജ്ഞ്കരമായി നടപ്പാക്കാൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു അഫ്ഗാനിസ്ഥാൻ പ്രസിഡന്റ് അഷ്റഫ് ഗനി മാലദ്വീപ് പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സോലി ശ്രീലങ്കൻ പ്രസിഡന്റ് ഗോട്ടബായ രജപക്സെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേഖ് ഹസീന നേപ്പാൾ പ്രധാനമന്ത്രി കെ

ശർമ്മ ഒലി ഭൂട്ടാൻ പ്രധാനമന്ത്രി ലോട്ടായ് ഷെറിൻ പാക്കിസ്ഥാൻ ആരോഗ്യ സഹമന്ത്രി സഫർ മിർസാ എന്നിവർ സംബന്ധിച്ചു

ചെക്ക് പോസ്റ്റുകളിലും വിമാനത്താവളങ്ങളിലും ട്രെയിനുകളിലും പരിശോധന തുടരുന്നു പരിശോധനയ്ക്ക് പോലീസ് സഹായം ഏർപ്പെടുത്തി ട്രെയിനുകൾ സംസ്ഥാന അതിർത്തി പിന്നിട്ട് ആദ്യം നിർത്തുന്ന സ്ഥലത്ത് യാത്രക്കാരെ പരിശോധിക്കാൻ സംവിധാനമൊരുക്കി

പുതിയ നിർദ്ദേശങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കാനല്ലെന്നും നാടിന്റെ സുരക്ഷയ്ക്ക് ഇതാവശ്യമാണെന്ന് മനസ്ട്രില്ല് ്ക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭ്യർത്ഥിച്ച പരിശോധന ഇൻട്രോ കൊറോണ വൈറസ് പ്രതി്രോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവിധ ജില്ലകളിൽ പരിശോധന ശക്തമാക്കി

പരിശോധന വോയിസ് കാസർഗോഡ് ജില്ലയിൽ അതിർത്തി കടന്ന് വരുന്ന ട്രെയിനുകളെയും വാഹനങ്ങളെയും പരിശോധിക്കാൻ ര് ടീമുകളെ ആരോഗ്യ വകുപ്പ് ഓരോ ടീമിലും പത്ത് വീതം ജെ എച്ച്

കാസർഗോഡ് സ്റ്റ് സ്റ്റേഷനിൽ നിലയുറപ്പിക്കുന്ന ടീം ഇതുവഴി തെക്കോട്ട് പോകുന്ന ട്രെയിനുകളിൽ കയറി പരിശോധന നടത്തിയശേഷം കാഞ്ഞങ്ങാട് ഇറങ്ങും

വാളയാർ ഗോവിന്ദാപുരം മീനാക്ഷിപുരം തുടങ്ങിയ അതിർത്തി ചെക്ക്പോസ്റ്റുകളിലാണ് പരിശോധന നടത്തുന്നത് ഇനിയൊരു അറിയിപ്പ് ലഭിക്കുംവരെ പരിശോധന തുടരുമെന്ന് പോലീസ് അറിയിച്ചു

മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് വൈകിട്ട് നാലുമണിക്കാണ് യോഗം

ൂ ഇവരെ രണ്ടാഴ്ചത്തെ നിരീക്ഷണത്തിനായ് ഡൽഹിയിലെ ക്ട് ഐ

ഇന്ത്യാക്കാരെ തിരിച്ചെത്തിക്കാൻ സഹായിച്ച എയർ ഇന്ത്യയ്ക്കൂം ഇറ്റാ്ലിയൻ ഗവൺമെന്റിനും അദ്ദേഹം നന്ദി അറിയിച്ചു കൊറോണ വിമാനം കൊറോണ രോഗബാധയെത്തുടർന്ന് മൂന്നാറിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന ബ്രിട്ടിഷ് പൌരനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തടഞ്ഞു

ഇവർ കയറിയതിനെ തുടർന്ന് കൊച്ചിയിൽ വൈകിയ നിന്നും യാത്ര വിമാനം പിന്നീട് പരിശോധനകൾക്കുശേഷം ദുബായിലേക്ക് പോയി നെടുമ്പാശ്ശേരി വിമാനത്താവളം സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് മന്ത്രി വി

സുനിൽകുമാർ കൊച്ചിയിൽ പറഞ്ഞു

വിദേശസഞ്ചാരികൾക്ക് അറിയിപ്പു ഇനിയൊരു ണ്ടാകുന്നതുവരെ ലക്ഷദ്വീപിൽ പൂർണ വില്ലക്ക് ഏർപ്പെടുത്തി

ആവശ്യപ്പെടുന്നവർക്ക് മാത്രം കമ്പിളിപ്പുതപ്പ് നല്കുമെന്ന് റയിൽവേ വാർത്താ കുറിപ്പിൽ അറിയിച്ചു

മൂന്നാറിൽ മന്ത്രി എം എം മണിയുടെ നേതൃത്വത്തിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ ഇനി സ്വീകരിക്കേണ്ട നടപടികൾ ചർച്ച ചെയ്തു

ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ നേതൃതിരൂ നൽകും

മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്നവരടക്കമുള്ളവർക്ക് ക്ക് പിടെ പ്രാഥമിക പരിശോധനയ്ക്ക് സൌകര്യമുണ്ടായിരിക്കും പ്ല കൊറോണ കണ്ണൂർ കണ്ണൂർ ജില്ലയിൽ കൊറോണ വ്യാപിക്കുന്നത് തടയുന്നതിന്റെ ഭാഗമായി അനിവാര്യമായവ ഒഴികെ മുഴുവൻ ചടങ്ങുകളും ഒഴിവാക്കാനും അനിവാര്യമായവയിൽ ആളുകളുടെ എണ്ണം പരമാവധി കുറയ്ക്കാനും തീരുമാനം

മറ്റുള്ളവരുമായി സമ്പർക്കം കൂടാതെ വീട്ടിൽ തന്നെ കഴിയേണ്ടതാണെന്നും കോഴിക്കോട് ജില്ലാ കലക്ടർ സാംബശിവ റാവു നിർദേശിച്ചു എന്നാൽ ഈ നിർദേശം ചിലർ ഗൌരവത്തിൽ എടുക്കുന്നില്ലെന്നും ഇത് വൈറസ് പകരുന്നതിന് കാരണമാകാൻ സാദ്ധ്യത ഉന്നെും അദ്ദേഹം മുന്നറിയിപ്പ് നല്കി നിർദ്ദേശം ലംഘിക്കുന്നവർക്കെതിര്ക് നിയമനടപടികൾ സ്വീകരിക്കുമെന്നും കലക്ടർ മുന്നറിയ്ക്കിപ്പ് നൽകി

പന്തളം സ്വദേശിക്കാണ് രോഗലക്ഷണം കത്തിയത്

വീട്ടിൽ ഐസ്വലേഷനിൽ കഴിയുകയായിരുന്ന ഇയാളെ പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി അതിനിടെ ഐസ്വലേഷനിൽ കഴിയുന്ന രണ്ട് പേരുടെ പരിശോധനാഫലം നെഗറ്റീവാണ്

പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് അഡീഷണൽ സെക്രട്ടറി ദാമു രവിയ്കെ പ്രത്യേക ഓഫീസറായി നിയമിച്ചിട്ടുള്ളത് പ്രതിരോധ നടപടി എന്ന് നിലയിൽ പാകിസ്ഥാനിലെ കർത്താർപൂർ ഗുരുദാരയിലേക്കുള്ള തീർത്ഥാടനം ഇന്ന് അർധരാത്രി മുതൽ താത്ക്കാലികമായി നിരിത്തി വയ്ക്കും

സംസ്കാരം പൂർണ ഔദ്യോഗിക ബഹുമതികളോടെ തിരുവനന്തപുരം ശാന്തികവാടത്തിൽ നടന്നു

പ്രതിരോധ പ്ലവർത്തനങ്ങളിലെ ഒന്നാംഘട്ടത്തിൽ ഇന്ന് പരപ്പനങ്ങാടി നഗരസഭയിലും മൂന്നിയൂർ ഗ്രാമപഞ്ചായത്തിലെ ചുഴലി പ്രദേശങ്ങളിലുമാണ് പക്ഷികളെ കൊന്നൊടുക്കിയത് ഇതിന്റെ ഭാഗമായി റാപ്പിഡ് റെസ്പോൺസ് ടീമുകളുടെ നേതൃത്വത്തിലാണ് പക്ഷികളെ കൊന്നൊടുക്കിയത് കൊന്ന കോഴികളെയും പക്ഷികളെയും ചിറമംഗലത്തുള്ള സർക്കാർ തെങ്ങിൻ തൈ ഉത്പ്പാദന കേന്ദ്രത്തിലെത്തിച്ച് തീയിട്ട് നശിപ്പിച്ചു

സുസ്ഥിര ഉപഭോക്താവ് എന്നതാണ് ഈ വർഷത്തെ ഉപഭോക്തൃദിനാചരണ വിഷയം

സാധനങ്ങൾ വാങ്ങുമ്പോഴും സേവനങ്ങൾ ഉപയോഗിക്കുമ്പോഴും അവ ന്യായമായ വിലയിലും ഗുണമേന്മയിലും ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനാണ് ഉപഭോക്ത്യ ദിനാചരണം ലക്ഷ്യമിടുന്നത്